പി സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ആരംഭിച്ചു

കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ജാതിയും മതവും പറഞ്ഞ് ഒറ്റതിരിഞ്ഞ് ആക്ര മിക്കുന്ന ശ്രമങ്ങളാണ് സംസ്ഥാനത്തിപ്പോൾ നടക്കുന്നത്

ഇവർക്കെതിരെ കർശന നട പടിയുണ്ടാവുമെന്നും പിണറായി അറിയിച്ചു

നാടിന്റെ ഭാവിയെ തകർക്കുന്നതാണ് ഈ ശ്രമങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള പൊലീസിന്റെ ആദ്യ വനിതാ ബറ്റാലിയൻ ആസ്ഥാന മന്ദിരം ഇന്ന് വൈകീട്ട് തിരുവനന്തപുരത്തെ മേനംകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് കായിക താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും താമസിക്കാനായി തയാറാക്കിയ വീടുകളാണ് ബറ്റാലിയൻ ആസ്ഥാനത്തിന്റെ പ്രത്യേകത

കേരളപ്പിറവിദിനം ഇന്ന് സംസ്ഥാനമെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്

മലയാളം മിഷന്റെ ഭാഷാപ്രചാരണ പരിപാടിയായ ഭൂമിമലയാളം പദ്ധ തിയുടെ ഭാഗമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്

ജില്ലകളിൽ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനാചരണം നടക്കുകയാ ണ് സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള വലിയ പ്രളയത്തെ അതിജീവി ക്കുന്നതിനിടയിലാണ് കേരളപ്പിറവി ദിനമെത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരുമയോടെ പ്രളയത്തെ അതിജീവിച്ച നമുക്ക് ഒരുമയോടെ തന്നെ നാടിനെ പുനർനിർമിക്കാനും കഴിയുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു

പുനർനിർമാണത്തിന്റെ പുതിയ മാതൃക ലോകത്തിനു മുന്നിൽ സൃഷ്ടിക്കാനാണ് കേരളത്തിന്റെ ശ്രമമെന്നും പിണറായി പറഞ്ഞു വികസന മേഖലയിലും ഭരണമേഖലയിലും ആദ്യസ്ഥാനക്കാരായി കേരളം രാജ്യത്ത് തിളങ്ങി നിൽക്കുന്നുണ്ട് നമുക്ക് മുന്നെ നടന്നവർ കെട്ടിപ്പടുത്ത സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും അടിത്തറയിൽ നിന്നാണ് നമ്മൾ ഇത്രയേറെ വളർന്നത് ആ സാഹോദര്യവും ഒരുമയും നഷ്ടപ്പെടുത്തില്ലെന്ന് നാം പ്രതിജ്ഞ എടുക്കേണ്ട സന്ദർഭമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലയാളദിന ഭരണഭാഷാ വാരാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ് ഘാടനം അസിസ്റ്റന്റ് കലക്ടർ അഞ്ജു കെ

ചടങ്ങിൽ കേ ന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും കവിയുമായ പി

എല്ലാ വകുപ്പുകളും ഏജൻസികളും ഇതിൽ പങ്കാളികളാവുമെന്നും മുഖ്യമന്ത്രി അറി യിച്ചു

ശബരിമല വനഭൂമിയിലെ നിർമാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ഉന്നതാധികാര സമിതി നിർദേശിച്ചു ശബരിമല ഉന്നതാധികാര സമിതി സെക്രട്ടറി അമർനാഥ് ഷെട്ടി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കുടിവെള്ള വിതരണം ശൌചാലയ നിർമാണം എന്നിവ മാത്രമേ അനുവദിക്കാവൂവെന്നും പ്രളയത്തിൽ തകർന്നു പമ്പയിലെ കെട്ടിടങ്ങൾ പുനർനിർമിക്കുകയോ അറ്റക്കുറ്റപ്പണി നടത്തുകയോ ചെയ്യരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് സുപ്രീം കോടതി നാളെ പരിഗണിക്കും ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച സൂപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് തടയാനാകില്ലെന്ന് ഹൈക്കോടതി വൃക്തമാക്കി

വിധിക്ക് എതിരായ റിവ്യൂ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനാണ് നിയമങ്ങളെന്നും കോടതി വൃക്തമാക്കി തിരുവനന്തപുരം ശ്രീകാര്യത്തെ മൺവിളയിലെ പ്ലാസ്റ്റിക് ഉപകരണ നിർമാണ യൂനിറ്റിലെ തീപിടുത്തിൽ വ്യവസായ സുരക്ഷാ ചട്ടങ്ങളുടെ ലംഘനമു ണ്ടായോ എന്ന് അന്വേഷിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു

തീപിടുത്തത്തിൽ വൻ നാശ നഷ്ടമാണ് ഉണ്ടായതെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു തീപിടുത്തത്തെ കുറിച്ച് അമ്പേഷിക്കാൻ പ്രത്യേക പൊലീസ് സംഘം രൂപീ കരിക്കുമെന്ന് ഡി

ആദി തൃയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം രൂപീകരിക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ഹേമചന്ദ്രൻ ഉത്തരവിട്ടു

ഷോർട് സർക്യൂ ട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബി ജെ പി സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ തുടങ്ങി ശബരിമല വിഷയത്തിൽ തുടർ പ്രക്ഷോഭം യോഗം ചർച്ച ചെയ്യും മഞ്ചേശ്വരം ഉപതെര ഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്വീകരിക്കേണ്ട നിലപാടും ചർച്ചാ വിഷയമാകും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഉയർന്നു

കയറ്റുമതിക്കാർ ഡോള റുകൾ വിറ്റഴിക്കാൻ തുടങ്ങിയതാണ് രൂപക്ക് ഉണർവ് പകർന്നത് റെയിൽവേ ചരക്ക്കൂലി വർധിപ്പിച്ചു

സിമന്റ് പെട്രോളിയം ഉത്പന്നങ്ങൾ ധാന്യങ്ങൾ യൂറിയ എന്നിവ കൊണ്ടുപോകുന്ന തിനുള്ള നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല

യാത്രക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തിനാണ് കേന്ദ്രറോഡ് ഗതാഗത മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഓട്ടോ റിക്ഷയും ഇ റിക്ഷകളും ഒഴികെ പൊതുഗതാഗത വാഹനങ്ങൾക്കെല്ലാം സ്ഥാന നിർണയ ഉപകരണങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ വർഷം അവസാനം വരെ രജിസ്ട്രേഷനെത്തുന്ന വാഹനങ്ങളിൽ വി എൽ ടി സൌകര്യങ്ങൾ എന്നു മുതൽ ഏർപ്പെടുത്താമെന്ന കാര്യം അതത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് തീരുമാനിക്കാം

ഇന്ത്യ വെസ്റ്റിൻഡീസ് അഞ്ചാം ഏകദിനം അൽപസമയത്തിനകം തിരുവ നന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും ടീമംഗങ്ങൾ സ്റ്റേഡിയത്തിലെത്തി

ഒരാവിലെ മുതൽ സ്റ്റേഡിയത്തിന് പുറത്ത് ക്രിക്കറ്റ് പ്രേമികളുടെ നല്ല തിരക്കാണ്

അഞ്ചുമത്സര് പരമ്പരയിൽ രണ്ടു മത്സരങ്ങൾ ജയിച്ച് മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യ അവസാന് ഏകദിനത്തിലും വിജയം സ്വന്തമാക്കി പരമ്പര നേടാനുള്ള തയ്യാറെടുപ്പിലാണ്

അതേസമയം കാര്യവട്ടത്തെ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് മൂടിക്കെട്ടിയ കാലാവസ്ഥ തുടരുന്നത് ആശങ്ക പ്രുത്തുന്നുണ്ട് കഴിഞ്ഞ രാത്രി തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തിരുന്നു മൺവിളയിൽ ഫാമിലി പ്ലാസ്റ്റിക്സിന്റെ ഫാക്ടറിയിലുണ്ടായ വൻ അഗ്നി ബാധ ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തെ ബാധിക്കില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ കെ വാസുകി അറിയിച്ചു

എൽ ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ എഫ് സി ഗോവയുമായി ഏറ്റുമുട്ടും രാത്രി ഏഴരക്ക് ജംഷഡ്പൂരിലാണ് മത്സരം

തലസ്ഥാന ദീപമായ കവരത്തിയിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാറൂഖ് ഖാൻ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു

ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസൽ ചീഫ് കൌൺസിലർ ബി

ഉച്ചക ട ഴിഞ്ഞ് അക്വാട്ടിക് മത്സരങ്ങൾ ആരംഭിക്കും

കരുൺ സംവിധാനം ചെയ്ത ഓള് ആയിരിക്കും ഉദ്ഘാന ചിത്രം സുഡാനി ഫ്രം നൈജീരിയ പൂമരം ഭയാനകം മക്കന ഈ

യൌ എന്നിവയാണ് പനോരമയിലെ മറ്റു മലയാള ചിത്രങ്ങൾ നോൺഫീ ച്ചർ വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് മൂന്ന് സിനിമയുണ്ടാകും

സജിത്ബാബുവിന്റെ അധ്യ ക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും അയിത്തോച്ചാടന സമരത്തിൽ പങ്കെടുത്തവരെ ചടങ്ങിൽ ആദരിക്കു ന്നതിനോടൊപ്പം ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ചിത്രപ്രദ ർശനം സെമിനാറുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും

എസ് ആർ ഒ ചാരക്കേസിൽ ആരോപണ വിധേയനായ സുധീർകുമാർ ശർമ അന്തരിച്ചു ് അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് പൂലർച്ചു ബംഗൂളൂരുവിലാണ് അന്തരിച്ചത്

ജമ്മുകാശ്മീരിൽ സുരക്ഷാ സേനയുമാണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാ ദികൾ കൊല്ലപ്പെട്ടു

പട്രോളിങ് നടത്തുകയായിരുന്ന സുരക്ഷാ സേനക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടൽ സ്ഥലത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെ ടുത്തിട്ടുണ്ട് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

ഇതെ തുടർന്ന് പത്തനം തിട്ട ഇടുക്കി മലപ്പുറംവയനാട് ജില്ലകളിൽ ശക്തമായ മഴയുടെ മുന്നറിയി പ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് തുലാമഴ ഈ മാസം രണ്ടാം വാരത്തോടെ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരി ക്കുന്നത്

ബംഗാൾ ഉൾക്കടലിൽ പതിവില്ലാത്തവിധം രൂപം കൊള്ളുന്ന ചെറു ന്യൂനമർദങ്ങൾ കാറ്റിന്റെ ദിശയിൽ മാറ്റം വരുത്തുന്നതാണ് തുലാമഴ വൈകാൻ കാരണം പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള ജലസേചന ത്തിനായി പോത്തുണ്ടി മംഗലം ഡാമുകൾ ഇന്ന് തുറക്കും